അവകാശങ്ങൾ സംരക്ഷിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

പ്രവർത്തിച്ചതിലൂടെയാണ് വികസനപദ്ധതികൾ പൂർത്തികരിക്കാനായതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

അടിസ്ഥാന സൌകരൃ വികസനമെന്നാൽ റോഡുകൾ നിർമിക്കുക മാത്രമല്ല

ഇതിൽ വലിയൊരളവ് കേരളത്തിൽ നിന്നുള്ളവരാണ് അവർക്കായി പ്രവർത്തിക്കാൻ രാജൃത്തിന് കഴിഞ്ഞതായും അദ്ദേഹം പറഞ്ഞു

ഗൾഫിലെ ഇന്ത്യാക്കാരുടെ ക്ഷേമം ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ ഒപ്പമുണ്ടാകുമെന്നും ശ്രീ മോദി വൃക്തമാക്കി

വെല്ലിംഗ്ടൺ ദ്വീപിലെ റോ റോ വെസലുകൾക്ക് പുറമേ കൊച്ചി തുറമുഖത്തെ അന്താരാഷ്ട്ര ക്രൂയിസ് ടെർമിനൽ സാഗരിക കൊച്ചി കപ്പൽശാലയിലെ നോളജ് ആന്റ് സ്കിൽ ഡെവലപ്പ്മെന്റ് സെന്റർ എന്നിവയും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു തുറമുഖത്ത് ദക്ഷിണ കൽക്കരി ബർത്തിന്റെ പൂനർനിർമ്മാണ പ്രവർത്തനങ്ങളൂം ശിലാസ്ഥാപനവും പ്രധാനമന്ത്രി നിർവ്വഹിച്ചു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മൂഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രമന്ത്രിമാരായ വി

ഹെലികോപ്റ്ററിൽ രാജഗിരി കോളേജ് മൈത്യാന്ത്ത് എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയെ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ട്ട്വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ഫോർട്ട് കൊച്ചി സബ് കളക്ടർ ഡോ ഹാരിസ് റഷീദ് തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു

കഴിഞ്ഞ നാലര വർഷങ്ങളായി വ്യവസായ വളർച്ചയുണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത്

നിലവിൽ ഒരു മത്സ്യത്തൊഴിലാളി പോലും ശ്രീലങ്ക്യിൽ തടവിലില്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

ചെന്നൈ ജവഹർലാൽ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിന് മുന്നോടിയായി എം

തമിഴർക്കും ചെന്നൈ നിവാസികൾക്കും തമിഴിൽ വണക്കം പറഞ്ഞാണ് പ്രധാനമന്ത്രി പ്രസംഗം ആരംഭിച്ചത് രാജ്യത്തെ കാർഷികോത്പാദനത്തിന് മികച്ച സംഭാവന നൽകുന്ന തമിഴ്നാട്ടിലെ കർഷകരെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു

കൂടാതെ തയ്യൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ ഡിസ്കവറി പ്രോജക്ട് ശിലാസ്ഥാപനത്തിലും പ്രധാനമന്ത്രി പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ആകാശവാണി

മാർച്ചിലാണ് എസ്എസ്എൽസി പരീക്ഷ മേയിൽ സിബിഎസ്ഇ പരീക്ഷയും

കോവിി്സ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ചായിരിക്കും തിരഞ്ഞെടുപ്പെന്നും സർക്കാരും വിവിധ പാർട്ടികളുമായി നടത്തിയി

സംസ്യജാനത്ത് തെരഞ്ഞെടുപ്പ് നടത്താൻ സജ്ജമാണെന്ന് സർക്കാർ ് അറിയിച്ചിട്ടുണ്ട്

ഏപ്രിലിൽ തിരഞ്ഞെടുപ്പ് വേണമെന്നാണ് യുഡിഎഫിന്റെയും ആവശ്യം മേയിൽ വേണം തിരഞ്ഞെടുപ്പെന്ന് ബിജെപിയും ആവശ്യപ്പെട്ടു

പരിശീലനം സിദ്ധിച്ച നായകളുമായി ഹെലികോപ്റ്ററിൽ നിന്നും പാരച്ച്യൂട്ടിൽ പറന്നിറങ്ങുന്ന പരിശീലനമാണ് പൂർത്തിയായത്